പരസ്യപ്രചാരണം ഇ്ന്ന് അവസാനിച്ചു

രമണയുടെ പേര് ചീഫ് ജസ്റ്റിസ് ശുപാർശ ചെയ്തു

കോവിഡ് സാഹചര്യത്തിൽ ആഘോഷ വേളകളിൽ ആൾക്കൂട്ടം ഒഴിവാക്കണമെന്ന് കേന്ദ്ര നിർദ്ദേശം

ബംഗബന്ധു ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ ജന്മശത്രൂബ്ദി ആഘോഷങ്ങളിൽ പങ്കെടുക്കാ നായാണ് പ്രധാനമന്ത്രിപൂ ബ്ംഗ്ലാദേശിൽ എത്തുന്നത് ബംഗ്ലാദേശ് വിമോചനത്തിന്റെ സു്പർണ്ണ ജൂബിലി ആഘോഷങ്ങളിലും അദ്ദേഹം പങ്കെടുക്കും ഇരു രാജ്യങ്ങൾക്കുമിടയിലെ നയതന്ത്ര ബന്ധത്തിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് പ്രത്യേക പ്രാധാ ന്യമുള്ളതായാണ് വിലയിരുത്തൽ കോവിഡ് മഹാമാരിയ്ക്ക് ശേഷമുള്ള പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയുടെ ആദ്യ വിദേശ സന്ദർശനമാണിത്

ബംഗ്ലദേശ് പ്രധാന മന്ത്രി ഷേഖ് ഹസീനയുമായും പ്രസിഡന്റ് അബ്ദുൾ ഹമീദുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും

സമ്മേ ളനം അവസാനിക്കാൻ മുൻപ് നിശ്ചയിച്ചു പ്രകാരം രണ്ടാഴ്ച കൂടി ബാക്കി നിൽക്കേയാണ് സമാപനം പ്രിപ്പിധ് സംസ്ഥാനങ്ങളിൽ തെര ഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ ന്ട്മേള്നം അവസാനിപ്പിക്കണമെന്ന ആവശ്യം പരിഗണിച്ചാണ് തീരുമാനം വിശദാംശങ്ങളിലേക്ക്

ന്യൂസ് ഡസ്ക് ആകാശവാണി

അടിസ്ഥാന സൌകര്യ പദ്ധതികൾക്കായി ഒരു ലക്ഷം കോടി രൂപ ഓഹരി മൂലധനമുള്ള കോർപ്പറേറ്റ് സ്ഥാപനമായ എൻ

പദ്ധതികൾക്കായി നേരിട്ടും അല്ലാതെയുമുള്ള വായ്പാ വിതരണം നിക്ഷേപ സമാഹരണം എന്നിവയാണ് എൻ

കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ ഇന്ന് പശ്ചിമബംഗാളിലെ പുരുലിയയിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്തു

ജെ

മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ തിരുവനന്തപുരത്ത് മൂന്ന് പൊതുയോഗങ്ങളിൽ സംസാരിക്കും

എഫിന്റെ പ്രചാരണത്തിന് ചുക്കാൻപിടിക്കുന്ന രാഹുൽഗാന്ധി മറ്റന്നാൾ ഇടുക്കിയിലെത്തും

ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പൊളിറ്റ്ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് തുടങ്ങിയവരും രംഗത്തുണ്ട്

ഡി എഫിനുവേണ്ടി യു ഡി എഫിനായി എ

ഡി

തമിഴ്നാട്ടിൽ കോവിഡ് പ്ല്യാപനം വർദ്ധിക്കുന്നത് രാഷ്ട്രീയ കക്ഷികൾക്ക് വെല്ലുവിളി സ്കൂഷ്ട്ടി്ക്കുന്നുണ്ട്

നിലവിലെ കീഴ്വഴക്കം അനുസരിച്ചാണ് സുപ്രീം കോടതിയിലെ ഏറ്റവും മുതിർന്ന ജഡ്ജിയായ ജസ്റ്റിസ് എൻ

രമണ്ണയുടെ പേര് ചീഫ് ജസ്റ്റിസ് ശുപാർശ ചെയ്തത്

ജഗൻ മോഹൻ റെഡ്ഡി ചീഫ് ജസ്റ്റിസ് എസ്

ഇതിനായി കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് തയ്യാറാക്കുന്ന വാർഷിക പ്രക്രിയ അപര്യാപ്തവും വിവേചനം നിറഞ്ഞതുമാണെന്ന് കോടതി നിരീക്ഷിച്ചു വനിതാ ഓഫീസർമാരുടെ നേട്ടങ്ങൾ എസിആറിനായി പരിഗണിക്കപ്പെടുന്നില്ലെന്നും കേസ് പരിഗണിക്കവേ ജസ്റ്റിസ് ഡി

കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് വനിതാ ഓഫീസർമാർക്ക് സൈന്യത്തിൽ സ്ഥിരം കമ്മീഷൻ അനുവദിക്കണമെന്ന് സുപ്രീംകോടതി വിധി ന്യായത്തിലൂടെ വ്യക്തമാക്കിയത്

ഇന്ന് പുതിയ മൂന്ന് ഹോട്ട്സ്പോട്ടുകളാണുള്ളത്

എന്നാൽ ് രണ്ടാം ഡോസ് സ്വീകരിക്കാൻ എട്ടാഴ്ചയിലധികം വൈകരുത്

രാജൃത്ത് വാക്സിന് ക്ഷാമമില്ലെന്നും ജനങ്ങൾ അനാവശ്യമായി ആശങ്കപ്പെടരുതെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു

മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങ ളിൽ കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുകയാണ്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

കോവിഡ് നിയന്ത്രണത്തിനായി സ്വീകരിച്ച മുൻകരുതലുകൾ ഇല്ലാതാക്കാൻ ഈ ഘട്ടത്തിലെ ചെറിയ അശ്രദ്ധ കാരണമാകുമെന്നും ആഭ്യന്തര മന്ത്രാലയം നൽകിയ നിർദ്ദേശത്തിൽ പറയുന്നു

ആദ്യ മൽസരത്തിൽ പരിക്കേറ്റ ഇന്ത്യൻ താരം ശ്രേയസ് അയ്യർ നാളെ കളിക്കിറങ്ങാൻ സാധ്യതയില്ല

സീനിയർ താരങ്ങൾ ഫോമിലേക്ക് മടങ്ങിയെത്തിയതും യുവതാരങ്ങൾ മികവ് തെളിയിക്കുന്നതും ഇന്തൃക്കുള്ള അനുകൂല ഘടകമാണ്